രാജ്യത്ത് തക്കാളി ഉരുളക്കിഴങ്ങ് സവാള എന്നിവയുടെ ന് മുഴുവൻ സമയ ലഭ്യത ഉറപ്പ് വരുത്തുന്നതിനുള്ള ഓപ്പറേഷൻ ഗ്രീൻസ് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം

ഏർപ്പെടുത്തിയ ഉപരോധം നിലവിൽ വന്നു

രാജ്യത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്നതാണ് ഐ എൻ എസ് അരിഹന്ദിന്റെ വിജയം രാസായുധ ഭീഷണി ഉയർത്തുന്നവർക്ക് ഈ വിജയം മറുപടി നൽകും രാസത്രയം വിജയകരമായി പൂർത്തിയാക്കൻ കഴിഞ്ഞ നിലയ്ക്ക് ഇത് ചരിത്രത്തിൽ ഇടം നേടുമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

ആണവ അന്തർവാഹിനികളുടെ രൂപകൽപന നിർമ്മാണം ഉപയോഗം എന്നിവ വിജയകരമായി നിർവഹിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയതായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി രാജവർദ്ധൻ റാത്തോഡ് രാജ്നാഥ് സിംഗ് എന്നിവരും ഐ എൻ എസ് അരിഹന്ദിന്റെ വിജയശിൽപികളെ അഭിനന്ദിച്ചു

രാജ്യത്തെ സുരക്ഷ മുൻകരുതലുകൾക്ക് ഈ വിജയം മുതൽക്കൂട്ടാകുമെന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു

തന്ത്രി കണ്ഠരര് രാജീവരുടെ സ്റാറ്നിധൃത്തിൽ മേൽശാന്തി എ

നാളെ രാത്രി പത്ത് മണിയോടെ നട അടക്കും

എന്നാൽ ക്രമസമാധാന പരിപാലനത്തിന്റെ പേരിൽ അക്രമങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ കോടതി മാധൃമങ്ങളെയും ഭക്തന്മാരെയും ബുദ്ധിമുട്ടിക്കരുതെന്നും നിർദേശിച്ചു നിലയ്ക്കലിൽ മുമ്പു ായ സംഘർഷങ്ങളിൽ അക്രമം നടത്തിയ പൊലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉ ാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു

ഹർഷ വർദ്ധൻ കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ വോയിസ് ന്യൂഡൽഹിയിൽ മൂന്നാമത് ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഗവേഷണം നൂതന ആശയങ്ങൾ എന്നിവയ്ക്കായി തന്റെ മന്ത്രാലയത്തിനും ആയുഷ് മന്ത്രാലയത്തിനും കൂട്ടായി പ്രവർത്തിക്കാമെന്നും ഡോ ഹർഷ വർദ്ധൻ അഭിപ്രായപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് ആയുർവേദത്തേയും മറ്റ് ഇന്ത്യൻ ചികിത്സാ സമ്പ്രദായങ്ങളേയും വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്നു െന്നും ആയുഷ് വകുപ്പ് മന്ത്രി ശ്രീപദ് നായിക് പറഞ്ഞു ആയുർവേദ ജിവിത ശൈലി പ്രോത്സാഹിപ്പിക്കുക ആയുർവേദത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അവബോധമു ാക്കുക എന്നിവ ലക്ഷ്യം വെച്ച് ധമ്പന്തരി ജയന്തി ദിവസത്തിലാണ് ആയുർവേദ ദിനം ആഘോഷിക്കുന്നത്

ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി തുടങ്ങിയ നേതാക്കളുടെ പേരിൽ നിരവധി അവ്വാർഡുകളും ബഹുമതികളും നിലവിലു ് സർദാർ വല്ലഭായ് പട്ടേല്ിന്റെ പ്രതിമ നിർമ്മിച്ചതിൽ കോൺഗ്രസ് ആശങ്കാകുലരാകേ തില്ലെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ്വർഗ്ഗീയ ഡോ

മുൻമന്ത്രിയും നിലവിൽ എം എൽ എയുമായ നിർമ്മല ദൂരിയ പെറ്റ്ലാവാഡിൽ നിന്നും ലോക്സഭ എം പി അനൂപ് മിശ്ര ഭിട്ടാർവർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും

നിത്യോപയോഗ സാധനങ്ങളായ തക്കാളി ഉരുളക്കിഴങ്ങ് സവാള എന്നിവയുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ജനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ാക്കുന്നതായി കേന്ദ്രമൂന്ത്രി ഹർസിമ്രത് കൌർബാദൽ പറഞ്ഞു ഉ എല്ലാ തല്പര കക്ഷികളുമായും ചർച്ച് ചെയ്ത് നടപ്പാക്കുന്ന ഓപ്പറേഷൻ ഗ്രീൻസ് വിപ്ലവകരമായ ഒരു പദ്ധതിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു

സംയുക്ത സുരക്ഷ സേനാംഗങ്ങൾ വൈകുന്നേരം മേഖലയിൽ നടത്തിയ തിരച്ചിലിനിടെയാണ് ആക്രമണം ഉ ായത് പ്രദേശത്ത് ഒളിച്ചിരുന്ന തീവ്രവാദികൾ സേനാംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു ആയുധധാരികളായ ര മൂന്നോ പേർ ആക്രമണത്തിൽ ഉൾപ്പെട്ടതായി കരുതുന്നുവെന്നും സൈനിക വൃത്തങ്ങൾ വൃക്തമാക്കി മരണങ്ങളോ മറ്റ് ദുരന്തങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല

വിദേശമന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ വിശദമായി വിഷയങ്ങൾ അവതരിപ്പിച്ചതിനെ ധനകാര്യ കമ്മീഷൻ അഭിനന്ദിച്ചു

ഈ മേഖലയിലെ മറ്റ് പ്രമുഖ ശക്തികളുടെ ഉയർച്ച സുഹൃത് രാജ്യങ്ങളിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കേ പദ്ധതികൾക്കാവശ്യമായ വിഭവ ലഭൃത എന്നിവയ്ക്ക് ഗവൺമെന്റ് പ്രാധാന്യം നൽകും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സ്ഥാനപതി കാര്യാലയങ്ങൾ തുറക്കുക രാജൃത്ത് പാസ്പോർട്ട് കേന്ദ്രങ്ങളുടെ ശൃംഖലകൾ സ്ഥാപിക്കുക എന്നിവയ്ക്ക് നടപടി സ്വീകരിക്കും ലോകത്താകമാനമുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം അത് വിപുലീകരിക്കുന്നതിനുള്ള വെല്ലുവിളികൾ എന്നിവയും കമ്മിഷനെ ധരിപ്പിച്ചതായി ഔദ്യോഗിക വാർത്താക്കുറിപ്പ് വൃക്തമാക്കി

ധൻതെരാസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു സമൂഹത്തിൽ സമാധാനവും ഐശ്വര്യവും പുലരാൻ ദിനം സഹായകമാകട്ടേ എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു

അമേരിക്കൻ ഉപരോധം നിയമ വിരുദ്ധമാണെന്നും അന്താരാഷ്ട്ര വൃവസ്ഥകളുടെ ലംഘനമാണെന്നും ഹസ്സ്ൻ റഹാനി അഭിപ്രായപ്പെട്ടു

വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം പുതുതായി നിർമ്മിച്ച ഏകനാ സ്റ്റേഡിയത്തിലാണ് മത്സരം